ഗാന്ധി മത്സരിക്കണമെന്ന് കെ പി സി സി നാളെ തീരുമാനമുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

സംസ്ഥാനത്ത് ഡ്രോൺ ക്യാമറകൾക്ക് ന് രജിസ്ട്രേഷൻ നിർബ്ഡ്മാക്കി തന്ത്ര പ്രധാന കേന്ദ്രങ്ങളിൽ കർശ്നാനിയന്ത്രണം

രാഹുൽ വയനാട് വയനാട്ടിൽ കോൺഗ്രസ്സ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് കെ പി സി സി രാഹുലിനായി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻമാറാൻ നിലവിലെ സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് സന്നദ്ധത പ്രകടിപ്പിച്ചു ഇതുസംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്ന് കെ

സി

വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിച്ചാൽ അത് യു

വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് രാഹുൽഗാന്ധിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്സ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല അറിയിച്ചു രാഹുലിൽ നിന്ന് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി കേരളത്തിലെ ഇടത് ശക്തിയോടാണ് രാഹുൽഗാന്ധിയുടെ മത്സരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചരൃം കൂടി ഓർക്കണം ഈ നിലപാട് ദേശീയസത്തയ്ക്ക് ചേരുന്നതാണോയെന്ന് കോൺഗ്രസ് പരിശോധിക്കണമെന്ന് അദ്ദേഹം കണ്ണൂരിൽ മാന്യമ പ്രവർത്തകരോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഹുൽഗാന്ധി കേരളത്തിൽ എത്തുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ശ്രീ പിണറായി വിജയൻ ചോദിച്ചു

കോൺഗ്രസ്സിന് ഉത്തരേന്ത്യയിൽ ഉറപ്പായ സീറ്റുകൾ ഇല്ലെന്നതുകൊ ണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള സുരക്ഷിത സീറ്റ് തേടിയാണ് രാഹുൽഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു

ജെ

അതിനിടെ തൃശ്ശൂരിൽ എൻ

കേന്ദ്ര നേതാക്കളുമായുളള ചർച്ചയിലാണ് ബി

ജെ പി ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പത്തനംതിട്ടയിലെ ബി

പി സ്ഥാനാർത്ഥി കെ

ശബരിമല വിഷയത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും

ജില്ലാ ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ തെരഞ്ഞെടുപ്പ് ബോധവത്കരണ വിഭാഗമായ സ്വീപ് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്

രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർഥികളുടെയും പ്രചാരണ വാഹനങ്ങളും റാലികളും പൊതു പരിപാടികളും മറ്റും വീഡീയോയിൽ പകർത്തുന്നതിനാണ് ടീമുകൾ രൂപീകരിച്ചത്

കണ്ണൂർ കളക്ടർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പരസ്യങ്ങളും വാർത്തകളും മറ്റും നൽകുമ്പോൾ അവ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമല്ലെന്ന് ഉറപ്പുവരുത്താൻ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ മീർ മുഹമ്മദലി പറഞ്ഞു

തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി വിശദാംശങ്ങളുമായി സോഫിയ

കരംഭീർ സിങ് ഇന്ത്യയുടെ അടുത്ത നാവികസേന നമേധാവിയായി വൈസ് അഡ്മിറൽ കരംഭീർ സിങ് ചുമതലയേൽക്കും

നിലവിലെ ഈസ്റ്റേൺ നാവിക കമാൻഡിൽ ഫ്ളാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫാണ് കരംഭീർ സിങ്

ഈ ചൊവ്വാഴ്ച വരെ കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി നാളെ വരെ വയനാട് മലപ്പുറം കാസർകോട് ഇടുക്കി എന്നീ ജില്ലകളൊഴിച്ച് മറ്റു ജില്ലകളിൽ താപനിലയിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വർദ്ധന ഉണ്ടാകും

ഈ രണ്ടു ദിവസങ്ങളിൽ തിരുവനന്തപുരം പത്തനംതിട്ട മലപ്പുറം പാലക്കാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും ശരാശരി താപനിലയിൽ വർധനവ് ഉണ്ടാകും ജലമാണ് ജീവൻ കാമ്പയിൻ വരൾച്ച അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ജലസംരക്ഷണവും ജലമിതവൃയവും എല്ലാ വീടുകളിലും നടപ്പാക്കുന്നതിനായി ഹരിതകേരളം മിഷൻ കുടുംബശ്രീയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ജലമാണ് ജീവൻ കാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി

അങ്കണവാടി പ്രവർത്തന സമയം സംസ്ഥാനത്തിന്റെ പലഭാഗങ്ങളിലും ചൂട് വർധിക്കുന്നതിനാൽ അത്തരം പ്രദേശങ്ങളിലെ അങ്കണവാടികളുടെ പ്രവർത്തന സമയം മാറ്റാൻ വനിത ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഷീബ ജോർജ്

ഉദ്ഘാടന മത്സരത്തിൽ നലവിലെ ചാമ്പൃൻ ചെന്നൈ സൂപ്പർ കിംഗ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും